പെട്രോളിനും ഡീസലിനും കേന്ദ്രം ലിറ്ററിന് ര രരുപ കുറച്ചു

ഏഴ് മ്യാൻമാർ പൌരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടികൾ അസം ഗവൺമെന്റ് പൂർത്തിയാക്കിയതായി കേന്ദ്രം

ബംഗളുരു തിരുവനന്തപുരം സെക്ടറിൽ പുതിയ ഒരു ട്രെയിൻ കൂടി റെയിൽവേ മന്ത്രാലയം അനുവദിച്ചു

വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ പൃഥിഷായ്ക്ക് കന്നി സെഞ്ചുറി

പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ ലിററിന് ഒന്നരരൂപ കുറച്ചു

കട്ടമെടുക്കുന്നത് എഴുപതിനായിരം കോടിയായി കുറച്ചിട്ടു ് ന്നൂം ശ്രീ ജെയ്റ്റ്ലി അറിയിച്ചു

ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആഹ്വാനം ചെയ്തത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകളും സംവാദങ്ങളും നടത്തേ ത് ആവശ്യമാണ്

അനധികൃത കുടിയേറ്റക്കാരായി ക െത്തിയ ഇവരുടെ പൌരത്വം മൃാൻമാർ അംഗീകരിച്ചതായി കോടതി പറഞ്ഞു വിദേശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏഴ് രോഹിങ്കൃകളെ അനധികൃത കുടിയേറ്റക്കാരായി കടെ ത്തിയതെന്ന് കേന്ദ്രഗവൺമെന്റ് കോടതിയിൽ ബോധിപ്പിച്ചു

പ്രതിരോധ സഹകരണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇന്ത്യയും റഷ്യയും ധാരണാ പത്രത്തിൽ ഒപ്പുവയ്ക്കും കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ

അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എസ്

ഇന്തൃക്ക് പ്രതിരോധ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന മുഖ്യരാജ്യമാണ് റഷ്യ നാളെ ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുടിൻ ഉഭയകക്ഷി ചർച്ച നടത്തും തുടർന്ന് കരാറുകളിൽ ഒപ്പു വയ്ക്കും പ്രതിരോധ കരാറുകൾക്ക് പുറമേ രാജ്യാന്തര ഉത്തര ദക്ഷിണ ഗതാഗത ഇടനാഴിയുടെ നിർമ്മാണവും ചർച്ചാ വിഷയമാകും

ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധം ഉൾപ്പെടെയുള്ള വിവിധ അന്താരാഷ്ട്ര ഉഭയകക്ഷി വിഷയങ്ങൾ ഇന്ത്യയും റഷ്യയും ചർച്ച ചെയ്യും

കാലാവധി തീരുന്നതിന് മുമ്പ് വിരമിക്കാൻ അനുവദിക്കമെന്ന് ആവശ്യപ്പെട്ട് ചന്ദ കൊച്ചാർ നേരത്തെ നൽകിയ അപേക്ഷ സ്വീകരിച്ചതായി ബാങ്ക് അറിയിച്ചു ഔദ്യോഗിക കാലാവധി അവസാനിക്കുന്നതിന് ആറ് മാസം മുമ്പായാണ് കൊച്ചാർ സ്ഥാനം ഒഴിയുന്നത് കൊച്ചാറിനെതിരെ നിലവിലുള്ള അന്വേഷണം തുടരുമെന്ന് ബാങ്ക് ബോർഡ് വൃക്തമാക്കി

ബംഗളുരുവിലെ ബാനസ്വാടിയിൽ നിന്ന് കൊച്ചുവേളിയിലേക്കും തിരിച്ചും ആഴ്ചയിൽ ര ു ദിവസം സർവീസുള്ള ഹംസഫർ എക്സ്പ്രസാണ് അനുവദിച്ചത് ഇത് സംബന്ധിച്ച കത്ത് റെയിൽവേ മന്ത്രി പീയുഷ് ഗോയൽ കേന്ദ്ര സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന് നൽകി മന്ത്രി കണ്ണന്താനത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പുതിയ ട്രെയിൻ ആരംഭിക്കുന്നതെന്ന് ശ്രീ പീയുഷ് ഗോയൽ പറഞ്ഞു

അടുത്ത നാല് ദിവസം കേരളത്തിൽ അതിശക്തമായ മഴക്ക് സാധ്യതയു ് തമിഴ്നാട് പോ ിച്ചേരി എന്നിവിടങ്ങളിലും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യത കേരളത്തിൽ കനത്ത മഴയ്ക്കും ചുഴലിക്കാറ്റിനും സാധ്യത യുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണം കേന്ദ്രകാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് കേരള ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തരയോഗം ചേർന്നു

ഇടുക്കി മലപ്പുറം എന്നിവിടങ്ങളിൽ ഞായറാഴ്ച്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടു ് മറ്റ് പല ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു

സദാശിവം ഇക്കാര്യങ്ങളുടെ ഏകോപനത്തിൽ ഐ

ലോക ബഹിരാകാശ വാരാചരണത്തിന്റെ ഉദ്ഘാടനം തുമ്പ വി

എസ്

ശാസ്ത്രീയമായ വിവരങ്ങൾ കൂടുതൽ കൃത്യതയോടെ മാധ്യമങ്ങൾ വഴി കൈമാറാൻ പരിശീലനങ്ങൾ വേണമെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു

ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് ആദ്യം തന്നെ ഓപ്പണർ കെ

എന്നാൽ പൃഥി ഷായും ചേതേശ്വർ പൂജാരയും ചേർന്ന് ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് കരകയറ്റി ആദ്യ അന്താരാഷ്ട്ര മത്സരത്തിൽ തന്നെ മുംബൈ താരം പൃഥിഷാ സെഞ്ചറി നേടി

സെമിയിൽ ആതിഥേയരായ ബംഗ്ലാദേശിനെ ര രി റ്റ്ൻസിന് തോൽപിച്ചാണ് ഇന്ത്യ കലാശപ്പോരാട്ടത്തിന് ആർഹ്ത നേടിയത്

വിമാനയാത്രക്ക് ബയോമെട്രിക് തിരിച്ചറിയൽ സംവിധാനമായ ഡിജി യാത്ര അടുത്ത വർഷം ഫെബ്രുവരിയിൽ യാഥാർത്ഥ്യമാവുമെന്ന് മന്ത്രി പറഞ്ഞു

ചിന്തക്ക് പ്രാമുഖ്യം നൽകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് കാലഘട്ടത്തിന്റെ ആവശ്യം

പർവതാരോഹ്ഗണത്തിൽ വൈദഗ്ധ്യം നേടിയവരാണ് സംഘത്തിലെ എട്ടു പ്പേർ എ്പറസ്റ്റ് കൊടുമുടിയിൽ കാൽകുത്തിയ ആദ്യ ഇന്ത്യൻ വനിതയായ ബചേന്ദ്രിപാലിന്റെ നേതൃത്വത്തിലാണ് ഇവർ എത്തിയത്